പട്ടേലിന്റെ സ്വപ്നങ്ങൾ ്യൂഥ്യാർത്ഥ്യമാക്കാനുള്ള നിർണ്ണായക ചുവടുവയ്പ്പാണെന്ന് പ്രധാന്മന്ത്രി നരേന്ദ്രമോദി

ദിനത്തിന്റെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കവളപ്പാറയിലും പുത്തുമലയിലും തിരച്ചിൽ തുടരുന്നു

ഹോൾഡ് മ്യൂസിക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തു

ജമ്മു കാശ്മീർ പുനഃസംഘടനയ്ക്കുശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷമാണ് ഇത് ഡൽഹിയിലും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാന ചടങ്ങു നടക്കുന്ന ചെങ്കോട്ട പരിസരം ബഹുമുഖ സുരക്ഷാ സംവിധാനത്തിൻ കീഴിലാക്കി മുതിർന്ന നേതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർ വിദേശ പ്രതിനിധികൾ സാധാരണക്കാർ തുടങ്ങിയവർ ചെങ്കോട്ടയിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ത്രിവർണ പതാകകളുടേയും മധുരപലഹാരങ്ങളുടേയും വിൽപനയും വിതരണവുമായി ഡൽഹിയിൽ പൊതു സമൂഹം ഒന്നടങ്കം ആഘോഷ തിമിർപ്പിലാണ്

ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ജൽ ജീവൻ പദ്ധതിയിലൂടെ മൂന്നര ലക്ഷം കോടി രൂപ ചെലവിടും

ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി സേനയുടെ ഗാർഡ് ഓഫ് ഹോണർ വീക്ഷിച്ചു ദേശസ്നേഹ മുഖരിതമായ അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയപതാക ഉയർത്തി സ്വാതന്തൃദിനാശംയ്ക്കൊപ്പം രക്ഷാബന്ധൻ ദിനാശംസയും നേർന്നുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു തുടങ്ങിയത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരേയും രക്ഷാപ്രവർത്തനം നടത്തുന്ന ദുരന്തനിവാരണസേന അംഗങ്ങളേയും അദ്ദേഹം അനുസ്മരിച്ചു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ജീവൻ തൃജിച്ച ധീരദേശാഭിമാനികളേയും അദ്ദേഹം അനുസ്മരിച്ചു ജമ്മു കശ്മീരിൽ കേന്ദ്രഗവൺമെന്റ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുത്തലാഖ് നിരോധിച്ചത് രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ലെന്നും ആ തീരുമാനം മുസ്സീം സ്ത്രീകളുടെ ശാക്തീകരണത്തിന് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജലപ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക ജലശക്തി മന്ത്രാലയത്തിന് തന്നെ രൂപം നൽകി എല്ലാ വീടുകളിലും ജലം എത്തിക്കാൻ ജൽ ജീവൻ എന്ന പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു

രാജ്യത്തെ ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വികസനത്തിന്റെ ഗുണഫലം ലഭ്യമാക്കാൻ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും രാജ്യത്തെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ സജീകരിക്കാൻ നൂറ്ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു

എല്ലാ ജില്ല ആസ്ഥാനങ്ങളിലും ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നതായി പ്രിൻസിപ്പൽ സെക്രട്ടറി രോഹിത് കൻഡാൽ അറിയിച്ചു

പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം പ്രമാണിച്ച് ഇളവുകൾ നൽകി ജമ്മുകാശ്മീരിൽ ഒരിടത്തും ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

രക്ഷാബന്ധൻ ആഘോഷവേളയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു സ്ത്രീകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനുമുള്ള സമൂഹത്തിന്റെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്താൻ രക്ഷാബന്ധൻ ആഘോഷം ഇടയാക്കുമെന്ന് രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു

എഫ് ഒഡ്ട്രൂപ്പൂട്ടി കമാന്റന്റ ഹർഷ്പാൽസിംഗ് കരസേനയിലെ പ്രക്ട്ശ്ജാ്ദവ് എന്നിവർക്കാണ് കീർത്തിചക്ര

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയപതാക ഉയർത്തിയശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയം പ്രതിസന്ധിയുണ്ടാക്കിയപ്പോൾ അസാധ്യമായി ഒന്നുമില്ലയെന്ന് കേരളജനത തെളിയിച്ചു അതേ നിശ്ചയദാർഢ്യം തന്നെ ഇപ്പോഴത്തെ വിഷമാവസ്ഥകളിൽ നിന്ന് കരകയറാൻ കേരളത്തിന് കൈമുതലാകും കവളപ്പാറയിൽ പോസ്റ്റ്മോർട്ടത്തിനായി പളളി വിട്ടുകൊടുത്ത സഹോദരങ്ങൾ രാജ്യത്തെ മഹത്തായ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു

സ്തുത്യർഹസേവനത്തിനുള്ള മെഡലുകളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു

പ്രളയത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണത്തിലും എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് സ്വാതന്ത്യദിന സന്ദേശം നൽകികൊണ്ട് മന്ത്രി പറഞ്ഞു

കൊല്ലത്ത് കെ രാജുവും പത്തനംതിട്ടയിൽ ജെ മേഴ്സിക്കുട്ടി അമ്മയും ആലപ്പുഴയിൽ ജി സുധാകരനും കോട്ടയത്ത് പി തിലോത്തമനും ഇടുക്കിയിൽ എം

എറണാകുളത്ത് വി

സുനിൽകുമാറും തൃശൂരിൽ എ

മൊയ്തീനും പാലക്കാട് കെ കൃഷ്ണൻകുട്ടിയും മലപ്പുറത്ത് കെ

കോഴിക്കോട് എ

ശശീന്ദ്രനും വയനാടിൽ കെ

ഉരുൾപൊട്ടൽ വൻദുരന്തം വിതച്ചു മില്പ്പുറം കവളപ്പാറയിൽ നിന്ന് ഏഴ് മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്ത്ീം ഇവിടെ നിന്ന് ഇന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു

പതിനായിരത്തിലേറെ വീടുകൾ ഭാഗികമായി തകർന്നു

ടി എമ്മു കളിൽ നിന്ന് പണം ലഭിക്കാതെ വരുന്നത് ഇനി മുതൽ ഉപഭോക്താക്കളുടെ പ്രതിമാസ സൌജന്യ എ ടി എം സേവനങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ആർ

ടി എം വഴിയുള്ള ബാലൻസ് അന്വേഷണവും പണം കൈമാറ്റവും പ്രതിമാസ സൌജന്യ സേവനങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശമുണ്ട്

വി ചാനലുകളിലെ പരിപാടികൾ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദേശങ്ങൾ ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങും സ്വകാര്യ സാറ്റലൈറ്റ് ന്യൂസ് ടി വി ചാനലുകൾ സ്വാതന്ത്ര്യദിനാഘോഷ ങ്ങളെക്കുറിച്ച് ഹൃസ്വ പരിപാടി സംപ്രേക്ഷണം ചെയ്യുകയും അതിന്റെ ആംഗ്യ ഭാഷാ പരിഭാഷ ഒപ്പം അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന് മന്ത്രാലയം നിർദേശിച്ചു ചാനലുകൾ സ്വന്തമായി ആംഗ്യഭാഷയിലുള്ള പരിപാടി അവതരിപ്പിക്കുകയോ അതല്ലെങ്കിൽ ദൂരദർശൻ വാർത്ത സൌജന്യമായി സംപ്രേക്ഷണം ചെയ്യുകയോ ആകാം

മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്

തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്